ആലോചിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കണ്ടെത്തി ഏത് സാഹചര്യവും ന്നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് കേന്ദ്രമന്ത്രി ഏർഷ്വർദ്ധൻ

നടപ്പാക്കില്ല ഇനി ഒരുപ്ത്തരവുണ്ടാകുന്നതു വരെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടില്ലച്ചു

പ്രധാനമന്ത്രി ബഞ്ചമിൻ നെതന്യാഹു

പരിപാലനം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണത്തിന്റെ പ്രമേയം

സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവുമധികം പേർ പിന്തുടരുന്ന ലോകനേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ടിറ്ററിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്നത് പ്രധാനമന്ത്രിയെയാണ്

തെലങ്കാനയിൽ കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തയാൾ ദുബായിയിൽ നിന്നെത്തിയതാണ് ഇവരുടെ യാത്രാസംബന്ധമായ മറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ടു പോയാൽ മതിയെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ പറഞ്ഞു ഇറാൻ ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു

ചൈന ഹോങ്കോങ്ങ് ജപ്പാൻ സൌത്ത് കൊറിയ തായ്ലന്റ് സിംഗപ്പൂർ നേപ്പാൾ ഇന്തൊനേഷ്യ വിയറ്റ്നാം മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തുവരെ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നുണ്ട്

ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാരുമായും ബന്ധപ്പെട്ടു വരികയാണെന്നും എംബസി അറിയിച്ചു

സഭയോടുള്ള ബഹുമാനവും മര്യാദയും കൂട്ടത്തുസൂക്ഷിക്കണമെന്ന് ലോക്സഭ സ്പീക്കർ ഓം ബിർള സഭാഷ്ട്രങ്ങ്ളോട് ആവശ്യപ്പെട്ടു

് ഇന്ത്യൻ പാർലമെന്റിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതാകണം സഭാംഗങ്ങളുടെ പെരുമാറ്റമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഡൽഹിയിലെ സംഘർഷം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ ബഹളമുണ്ടാക്കിയത് കോൺഗ്രസ് ടി എം സി

എം

ഡൽഹിയും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായും സമാധാനത്തിലെത്തിയ ശേഷം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ ഉറപ്പുനൽകിയെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ബഹളം തുടർന്നു

തുടർച്ചയായി ആറ് ദിവസം അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പൊലീസ് കമ്മീഷണർ എസ്

ഇന്നായിരുന്നു ശിക്ഷ നടപ്പാക്കേണ്ട്ത് പ്രതികളിൽ ഒരാളായ പവൻ ഗുപ്തയുടെ ദയാഹർജി ആഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള സാഹചര്യത്തിൽ ഇന്ന് വ്ധ്യ്തിക്ഷ നടപ്പാക്കാൻ നേരത്തെ പുറപ്പെടുവിച്ചിരുന്ന മരണവാറന്റ് കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു

ഏപ്രിലിലും സെപ്തംബറിലും നടത്തിയ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭരണത്തിനുള്ള വ്യക്തമായ ഭൂരിപക്ഷം കണ്ടെത്താനായില്ല

ഭൂമിയിലെ എല്ലാ ജീവനും പരിപാലനം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണത്തിന്റെ പ്രമേയം

രാജ്യാന്തര ഏജൻസിയായ ഐ

എൻ കണക്ക് പ്രകാരം ലോകത്ത് ആകെ രേഖപ്പെടുത്തിയിട്ടുള്ള ജീവജാലങ്ങളിൽ എട്ട് ശതമാനത്തോളം ഇന്ത്യയിലുണ്ട്

ആഗോളതലത്തിൽ തിരിച്ചറിയപ്പെട്ടിട്ടുള്ള ജൈവ വൈവിദ്ധ്യ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഹിമാലയം പശ്ചിമഘട്ടം വടക്കുകിഴക്കൻ വനമേഖല ആന്റമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവ രാജ്യത്ത് ഇന്ന് വന്യജീവി പരിപാലനത്തിന് വിപുലമായ സംവിധാനങ്ങളുണ്ട്

കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉ്തകുന്ന തീരുമാനമാണിതെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ട്വിറ്ററിൽ കുറിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ മാസം അവസാനത്തെ ബംഗ്ലാദേശ് സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായിരുന്നു ചർച്ചു

വ്യവസായികൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുനരുദ്ധാരണ പാക്കേജുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം

ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തീരുവന്ന്തപുരം ജില്ലയിലാണ്

ഇന്ത്യയും ഓസ്ട്രേലിയയും എ ഗ്രൂപ്പിൽ നിന്നും ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും ബി ഗ്രൂപ്പിൽ നിന്നും സെമിയിലെത്തി